എൽ ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ജെഡിയു എംപി ബൈദ്യനാഥ് പ്രസാദ് മഹാതോ അന്തരിച്ചതിനെ തുടർന്നാണ് വാല്മീകി നഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്

ട്ട്സീറ്റു്കളിൽ കോൺഗ്രസ് മുന്നിലാണ്

സമാജ് വാദി പാർട്ടി ഒരു സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി മറ്റൊരു സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന എട്ട് മണ്ഡലങ്ങളിലും ബിജെപി മുന്നിലാണ് ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഉപതിരഞ്ഞെടുപ്പ് നടന്ന ഒരോ സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മുന്നിൽ

മറ്റ് നാല് ഇടങ്ങളിലും ബിജെപി മുന്നിലാണ്

നാഗാലാൻഡിലെ രണ്ടു സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർഥികളാണ് മുന്നിൽ

ഇന്നലെ നാല്പത്തി രണ്ടായിരത്ത്രിളം പേരാണ് കോവിഡിൽ നിന്നും മുക്തി നേടിയത് നിലവിൽ അഞ്ചു ്ലക്ഷത്തി അയ്യായിരത്തോളം പേർ ചികിത്സയിലുണ്ട്

അതേസമയം ആഗോളതലത്തിൽത്തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണ നിരക്കാണ് രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്

ഇതാദ്യമായാണ് വെർച്ചൽ രീതിയിൽ ഉന്നത തല എസ്

ഇന്ത്യ മുഴുവൻ സമയ അംഗമായി പങ്കെടുക്കുന്ന മൂന്നാമത്തെ എസ്

ഒ യുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും ഇന്ത്യ സജീവമായി പ്രവർത്തിച്ചു വരുന്നു

കേന്ദ്ര നിയമമന്ത്രി പെട്രോളിയം മന്ത്രി ഒഡിഷ മുഖ്യമന്ത്രി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും

അന്തരീക്ഷ ഗുണനിലവാരം മോശമായി തുടരുന്ന നഗരങ്ങളിലും പട്ടണങ്ങളിലും ഇത് ബാധകമായിരിക്കും എന്ന് ട്രിബ്യൂണൽ ചെയർമാൻ ആദർശ് കുമാർ ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി

എന്നാൽ ദീപാവലി ഛട്ട് ക്രിസ്മസ് പുതുവത്സരം തുടങ്ങിയ ആഘോഷ വേളകളിൽ രണ്ടുമണിക്കൂർ മാത്രമേ പടക്കങ്ങൾ പൊട്ടിക്കാൻ അനുമതി ഉണ്ടാകൂ ഉത്സവ സീസനോടനുബന്ധിച്ച് പടക്കങ്ങളുടെ ഉപയോഗവും വിൽപനയുമായി ബന്ധപ്പെട്ട് ഡൽഹി ഗവൺമെന്റും പ്രത്യേക മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്

പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

ഡി ഒ ഭവൻ പരിസരത്ത് സ്ഥാപിച്ച ഉപഗ്രഹ പ്രതിരോധ മിസൈലിന്റെ മാതൃക രാജൃരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് അനാവരണം ചെയ്തു

ആദ്യ ആന്റിസാറ്റലൈറ്റ് മിസൈലിന്റെ മാതൃകയാണിത്

എൽ ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസ് അഞ്ചാമത് ഐപിഎൽ കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്

ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഐപിഎൽ പതിമൂന്നാം സീസണാണ് ഇന്ന് തിരശ്ശീല വീഴുക